ദേശീയ എഞ്ചിനീയർ ദിനത്തിലാണ് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതെന്നും രാജ്യത്തെ എഞ്ചിനീയർമാർ നൽകിയ മഹത്തായ സംഭാവനകൾ കൊണ്ടാണ് ഭാരതം കെട്ടിപ്പടുത്തതെന്നും പദ്ധതികൾ ഉദ്ഘടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു

അമൃത് ദൌത്യത്തിന്റെയും സംസ്ഥാന പദ്ധതികളുടെയും ഫലമായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ബിഹാറിലെ നഗരപ്രദേശങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളമെത്തിക്കാൻ സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും സുപ്രധാന നിർമാണങ്ങളിലും പദ്ധതികളിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു

യഥാർഥ നിയന്ത്രണ രേഖയിലെ സാഹചര്യം സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ വോയിസ് പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയുമാണ് അയൽക്കാരുമായുള്ള സമാധാനപരമായ ബന്ധത്തിന് അടിസ്ഥാനമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

മൂന്ന് പ്രധാന കാര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് ശക്തമായ നിലപാടാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി സഭയെ അറിയിച്ചു

ഇന്ത്യയും ചൈനയും തമ്മിലുള്ള എല്ലാ കരാറുകളും ധാരണകളും പൂർണ്ണമായും പാലിക്കപ്പെടണം വളരെ ഉയരത്തിലും പ്രതികൂല കാലാവസ്ഥയിലും മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്ന സായുധ സേനയെ പിന്തുണച്ച് പ്രമേയം പാസാക്കണമെന്ന് അദ്ദേഹം ലോക് സഭയോട് അഭ്യർത്ഥിച്ചു അതിർത്തിയിൽ ചൈനീസ് സൈനികരുടെ അക്രമാസക്തമായ പെരുമാറ്റം മുൻകാല കരാറുകളെല്ലാം ലംഘിച്ചു

എന്നാൽ വിഷയം ലോക്സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിമാർ വാക്കൌട്ട് നടത്തി

പുതിയ എയിംസിനായി ഒരു ഡയറക്ടർ തസ്തിക സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി

ബി ബി

നഴ്സിംഗ് സീറ്റുകളും ഉണ്ടാകും

കഴിഞ്ഞ ദിവസം മുസാഫർപൂറിലും പറ്റ്നയിലും സന്ദർശനം നടത്തിയ സംഘം ഇന്ന് ബോധഗയയും ഭഗൽപൂറും സന്ദർശിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായും സംഘം ചർച്ച നടത്തി

റ റയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും സ്വകാര്യ നിക്ഷേപകരും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക

രോഗബാധ വർധിച്ചു വരുന്ന സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

സ്പാനിഷ് ഫ്ളൂവിന് സമാനമായ സാഹചര്യമാണ് ലോകത്ത് ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

അഞ്ചു കോടി മനുഷ്യരുടെ ജീവൻ കവർന്ന ചരിത്രം ആവർത്തിക്കരുത്

ഇതെല്ലാം ആവർത്തിച്ചു പറയുന്നത് അപകടങ്ങൾ വരുത്താതിരിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ടെസ്റ്റ് ട്രാക്ക് ആൻഡ് ട്രീറ്റ് സമീപനം ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉയർന്ന രോഗമുക്തി നിരക്കിനും മരണനിരക്ക് കുറയുന്നതിനും കാരണമായിട്ടുണ്ട്

ഇത് സംബന്ധിച്ച ബിൽ ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു

മൂന്നിനും പ്രത്യേകമായി ഡയറക്ടർ ജനറൽമാരെയും കേന്ദ്ര സർക്കാർ നിയമിക്കും

ടി യുടെ എട്ട് ആഴ്ചത്തെ ബ്ബദൽ വിദ്യാഭ്യാസ കലണ്ടർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഷ്രിയാൽ നിഷാങ്ക് പുറത്തിറക്കി വിദ്യാഭ്യാസം രസകരമാക്കുന്നതിന് ലഭ്യമായ സാങ്കേതിക വിദ്യകളും സാമൂഹ്യ മാധ്യമങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതിയ കലണ്ടർ അധ്യാപക്ക്ർക്ക് നൽകുമെന്ന് ശ്രീ പൊഖ്രിയാൽ പറഞ്ഞു പഠിതാക്കൾക്കുള്ളൂർ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വീട്ടിലിരുന്ന് തന്നെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും കഴിയും ഇന്റർനെറ്റ് സൌകര്യം ഇല്ലാത്ത വിദ്യാർത്ഥികളെ സഹായിക്കാൻ മൊബൈൽ ഫോണുകളിലൂടെയുള്ള ശബ്ദ സന്ദേശം ഉപയോഗിക്കാനും അധ്യാപകർക്ക് നിർദ്ദേശമുണ്ട്

വരുന്ന ഒരു വർഷത്തേക്കാണ് ഈ മാറ്റങ്ങൾ വരുത്തിയത്

അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനത്ത് നാലര ലക്ഷത്തിലധികം പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു